കോൺഗ്രസ്സിനും ബി ജെ

മുഖ്യമന്തി കോലീബി സഖ്യം സംബന്ധിച്ച് തുറന്ന സംവാദത്തിന് തയ്യാറെന്ന് കെ

സി സി അധ്യക്ഷൻ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപി ക്കുമെന്ന് കുമ്മനംരാജശേഖരൻ

ഐ

എ ജില്ലാ ജഡ്ജി രാകേഷ് സ്വാലിന് മുമ്പാകെ സമർപ്പിച്ചിരുന്നത്

ഡൽഹിയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ലീപ്പർ സെൽ രൂപീകരിക്കാനുള്ള ദൌത്യമാണ് മുദാസ്സിർ സജ്ജാദിനെ ഏല്പിച്ചിരുന്നത്

പ്രതിപക്ഷ നേതാക്കളുടെ പ്രസ്താവനകളെ ഇന്ത്യൻ ജനത ചോദ്യം ചെയ്യണമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു കോൺഗ്രസിന്റെ വിദേശകാര്യ വിഭാഗത്തിന്റെ ചുമതലയുള്ള സാം പിട്രോഡയെയും ജനങ്ങൾ മാപ്പുതരില്ല എന്ന ഹാഷ്ടാഗിൽ പ്രധാനമന്ത്രി വിമർശിച്ചു കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത് മുംബൈ ഭീകരാക്രമണത്തിന് പ്ലൂ ശേഷവും ഇന്ത്യയ്ക്ക് വ്യോമാക്രമണത്തിലൂടെ മറുപൂടി നെല്കാമായിരുന്നു എന്നാൽ അങ്ങനെയല്ല ഗവൺമെന്റ് ളച്ചയ്തത് എന്ന സാം വിട്രോയുടെ പ്രസ്താവനയാണ് പ്രധാന്മുന്ത്രിയുടെ വിമർശനത്തിന് കാരണ മായത് ഇത്തരം പ്രസ്താവനകളിലൂടെ ഭീകരവാദ ശക്തികളോട് പ്രതികരിക്കുന്നതിലുള്ളു പ്പിമുഖതയാണ് കോൺഗ്രസ് വ്യക്തമാ ക്കുന്നതെന്ന് ശ്രീ

ഇന്ത്യൻ പ്രതിരോധ സേനയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ദേശീയ ദിനാഘോഷത്തിന് തുടക്കം കുറിച്ച നടപടി യേയും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ബലാക്കോട്ട് വ്യോമാക്രമണം സംബന്ധിച്ച സാം പിട്രോഡയുടെ പ്രസ്താവനയെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും വിമർശിച്ചു ബലാക്കോട്ടിൽ ഇന്തൃ നടത്തി യ ആക്രമണം തെറ്റായിരുന്നുവെന്നാണ് പിട്രോഡ വിശ്വസിക്കുന്ന തെന്ന് പരാമർശിച്ച ധനമന്ത്രി ഇസ്താമിക് സഹകരണ സംഘടനാ രാഷ്ട്രങ്ങളടക്കം ഒരു രാജൃവും ഇന്തൃയുടെ നടപടിയെ കുറ്റപ്പെടു ത്തിയിട്ടില്ലെന്നും പറഞ്ഞു നിർഭാഗൃവശാൽ പിട്രോഡയടക്കമുള്ള വർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയ ശാസ്ത്രത്തെ മാത്രം പിന്തുടരുന്നവരാണെന്നും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു നേത്തെ ബലാക്കോട്ട് വ്യോമാക്രമണത്തിലെ മരണസംഖ്യയെ ചോദ്യം ചെയ്ത പിട്രോഡ പിന്നീട് ഗവൺമെന്റ് തീരുമാനത്തെ ബഹുമാനി ക്കുന്നതായി വൃക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കവേ ഇന്തൃൻ വിദേശകാരൃവക്താവ് രവീഷ് കുമാറാണ് ഇക്കാര്യം വിശദീകരിച്ചത് ഹുറിയത്ത് പ്രതിനിധികളെ ദേശീയദിനാഘോഷത്തിൽ പങ്കെടുപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചതിനെത്തുടർന്നാണ് ഇന്ത്യയുള്ളട പിന്മാറ്റം സംഝോധ ട്രെയിൻ അപകടത്തിന് കാരണക്കാരെന്ന് ആരോപിക്കപ്പെട്ട നാല് പേരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി കുറ്റവിമുക്തനാ ക്കിയതിൽ പാകിസ്ഥാൻ പ്രതിഷ്ട്രേധ്മറിയിച്ചിരുന്നു ഇന്ത്യൻ നീതിവ്യവസ്ഥ എങ്ങനെ പ്രവ്ർത്തിക്കുന്നുവെന്ന പാകിസ്ഥാന്റെ അറിവില്ലായ്മയാണ് ഇതിന്റ് കാരണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ തുടർ നടപടികൾ പൂർത്തീകരിച്ചും ദുക്ട്സാക്ഷികളുടെ മൊഴികൾ കണക്കിലെടു ത്തുമാണ് ആരോപണ വിധേയരെ വിട്ടയച്ചത്

ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ മുഴുകാതെ ഭീകരവാദികൾ ക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്തൃൻ വക്താവ് പറഞ്ഞു ഭീകരവാദമെന്ന പ്രധാനപ്രശ്നത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധതിരിക്കുന്നതിനായി ഇസ്താമാബാദ് അനാവശ്യ ആരോപണമുണ്ടാക്കുകയാണെന്നും കുമാർ അഭിപ്രായപ്പെട്ടു

ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആക്രമണങ്ങളിൽ പരിക്കേറ്റു ബാരാമുള്ളയിലെ കലന്തര കണ്ടി ക്രീനി ഗ്രാമത്തിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇവിടെ ഏറ്റുമുട്ടൽ അവസാനിച്ചു ബന്ദിപ്പോറയിലെ ഹജിൻ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട രണ്ട് തീവ്രവാദികളിലൊരാൾ പാകിസ്ഥാനി വംശജനും ലഷ്കർ ഇ ത്വയ്ബ കമാൻഡറുമാണ് സോപ്പോറിൽ കൊല്ലപ്പെട്ട രണ്ട് പേരും ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരസംഘടനയുമായി ബന്ധമുള്ളവരാണ് എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ച വിശദാംശ ങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് ഔദ്യോഗികവൃത്തങ്ങൾ അറിയിച്ചു കൂടുതൽ തീവ്രവാദികൾ ഷോപ്പിയാൻ സോപ്പൂർ മേഖലകളിൽ ഉണ്ടെന്ന വിവരത്തിന്മേൽ ഇയിടെ ആക്രമണ പ്രതൃാക്രമണങ്ങൾ തുടരുകയാണ്

കഴിഞ്ഞ അഞ്ച് പ്ർഷങ്ങളിൽ ശരാശരി ഏഴ് ശതമാനം വളർച്ചാ നിരക്കാണ് ഇന്ത്യൻ സമ്പദ്വൃവസ്ഥ രേഖപ്പെടുത്തിയത് ഇക്കാലയളവിൽ സൂപ്രധാനമായ ഒട്ടേറെ പരിഷ്കാരങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട് ഉയർന്ന വളർച്ചാനിരക്ക് നിലനിർത്തുന്നതിന് കൂടുതൽ പരിഷ്കാരങ്ങൾ ആവശൃമാണെന്നും ഐ

എഫ് കമ്മ്യൂണിക്കേഷൻസ് മേധാവി ജെറി റൈസ് ചോദ്യങ്ങളോട് പ്രതി കരിക്കവെ വൃക്തമാക്കിയതാണിത്

എഫിന്റെ അടുത്ത മാസം നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ പുറത്തിറക്കുന്ന സർവ്വേ റിപ്പോർട്ടിൽ ഇന്ത്യൻ സമ്പദ്ഘടന സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പിയുമായി ഡോ ജിതേന്ദ്ര സിംഗും ജുഗൽ കിഷോർ ശർമ്മയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉധംപൂർ ഡോഡ ജമ്മു പൂഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ബിജെപി സ്ഥാനാർത്ഥികളായി ഇരുവരും പത്രിക സമർപ്പിച്ചത്

ജെ

ജി ്ദീനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ കാൽടെക്സിൽ നടന്നി പ്രചടിങ്ങിൽ സംസാരിക്കുകയായി രുന്നു അദ്ദേഹം അതേസമയ്യം കോൺഗ്രസ് ലീഗ് ബിജെപി സഖ്യം സംബന്ധിച്ച് പരസ്യ സ്ക്പ്പ്ാദ്ത്തിന് തയ്യാറെന്ന് കെ

സി

ഇതിനായി സി

എം

പാർട്ടിയുടെ ഐക്യം തകർക്കുന്ന തരത്തിൽ ആരെങ്കിലും പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ശ്രീ

പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കുമെന്ന് മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു

ആശയക്കുഴപ്പമുണ്ടെന്നത് അടിസ്ഥാനരഹിതമാണെന്നും എല്ലാവർക്കും പ്രാതിനിധ്യം നൽകി യാണ് പട്ടിക തയ്യാറാക്കിയതെന്നും ശ്രീ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു

പി അഞ്ച് സീറ്റിലും ജിതൻ റാം മാഞ്ചീയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും മുകേഷ് സാഹ്നിയുടെ വികാസ് ശീൽ ഇൻസാൻ പാർട്ടിയും മൂന്ന് വീത്മുട്ട്സ്ട്രിറ്റിലും മത്സരിക്കും ശരത് യാദവും സിപിഐ എം

ആദ്യ ഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളേയും പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനും മഹാസഖ്യം തീരുമാനിച്ചു

ഡി വക്താവ് മനോജ് കുമാറാണ് പട്നയിൽ നടന്ന പത്രസമ്മേളനത്തിൽ സഖ്യ തീരുമാനം അറിയിച്ചത്

ഒസാമാബാദ് ഹിംഗോലി മണ്ഡലങ്ങളൊഴികെ ബാക്കിയെല്ലായിടത്തും നിലവിലെ എം പിമാർക്ക് സീറ്റ് അനുവദിക്കാനാണ് ശിവസേന മേധാവി ഉദ്ധവ് താക്കറെയുടെ തീരുമാനം

സി പി കോൺഗ്രസ് സഖ്യം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു

ശുദ്ധജലം എല്ലാവർക്കും ലഭ്യമാക്കാൻ രാജ്യം ഒരുമിച്ച് ശ്രമിക്കണമെന്ന് ഉപരാഷ്ട്രപതി എം

രാജ്യത്തെ ജീവനാഡികളായ നദികളെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ഓരോ പൌരനും ഉത്തരവാദിത്വമുണ്ടെന്ന് അദ്ദേഹം തന്റെ ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു